രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് ഫലകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്യും

വാർത്തകൾ വിശദമായി രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് അയോധ്യയിൽ ഇന്ന് ഭൂമി പൂജ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

എസ് എസ് മേധാവി മോഹൻഭാഗവത് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ദ് നൃത്യ ഗോപാൽദാസ് എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പം വേദിയിലുണ്ടാകും

ശ്രീഹനുമാൻ ഗഡി ക്ഷേത്രത്തിൽ ആദ്യം ദർശനം നടത്തുന്ന നരേന്ദ്രമോദി പിന്നീട് രാംലല്ലയിലും രാമ ജന്മഭൂമിയിലും പൂജ നടത്തും

പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് മൺചിരാതുകളാൽ അയോധ്യയിലെ പാതകളും വിശുദ്ധ സരയു നദിയുടെ പടിക്കെട്ടുകളും ദീപാലംകൃതമാക്കിയിട്ടുണ്ട്

ദൂരദർശനും ചടങ്ങ് നേരിട്ട് സംപ്രേഷണം ചെയ്യും

ഡോക്ടർമാരുടെ നിർദേശമനുസരിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചതായും ആരോഗ്യവാനാണെന്നും പ്രധാൻ ട്വിറ്ററിൽ അറിയിച്ചു നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച ആഭ്യന്തര മന്ത്രി അമിത്ഷാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ദേശ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ആയിരം കടന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർബാബു

കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ മരണ വീട്ടിൽ കൊണ്ടുപോയ എട്ട് മാസം പ്രായം വരുന്ന കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് രോഗബാധയുണ്ടാകുന്നത് അപകടകരമാണെന്നും അധികൃതർ പറഞ്ഞു രുര കൊല്ലം കോർപ്പറേഷനിലെ മീനത്തുചേരി ഡിവിഷനും പുനലൂർ നഗരസഭയിലെ വാളക്കോടും കണ്ടെയിൻമെന്റ് സോണാക്കി

മൂന്ന് വാർഡുകളെ ഒഴിവാക്കി ഇരിങ്ങാലക്കുട നഗരസഭയിലും മുരിയാട് ഗ്രാമപഞ്ചായത്തിലും ട്രിപ്പിൾ ലോക്ക് ഡൌൺ തുടരും

ആളുകൾ കൂട്ടം ചേരുന്നത് ഒഴിവാക്കി ചടങ്ങുകൾ പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ അറിയിച്ചു

അമേരിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചുവരുടെ എണ്ണം അമ്പതു ലക്ഷത്തിലേക്ക് അടുക്കുന്നു

കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോട് ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംത്തിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച മലപ്പുറം ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്

അതിർത്തി പ്രദേശമായ വയനാട് പുത്തുമലയിലും നീലഗിരി ജില്ലയിലെ നാടുകാണി ഗൂഡല്ലൂർ ദേവാല പ്രദേശങ്ങളിലും പെയ്യുന്ന കനത്ത മഴയാണ് ചാലിയാറിൽ ജലനിരപ്പ് ഉയരാൻ കാരണം കുതിരപ്പുഴയിലും കാഞ്ഞിരപ്പുഴയിലും കുറുവൻ പുഴയിലും മലവെള്ളപാച്ചിൽ തുടരുന്നു രുര പാലക്കാട് ജില്ലയിലും മഴ കനത്തു അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു

വി ലൈനിന്റെ ടവർ കടപുഴകിയതോടെ അട്ടപ്പാടിയിലേക്ക് വൈദ്യുത വിതരണം നിലച്ചു ജില്ലയിലെ മംഗലം കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി അട്ടപ്പാടി ചുരം റോഡിലൂടെ യാത്രയിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി

രുമ കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടറുകൾ തുറന്നതിനാൽ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും തിരൂർ പൊന്നാനിപ്പുഴയിലും ജലനിരപ്പ് ഉയരാനും കരകവിഞ്ഞ് ഒഴുകാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പുഴയിൽ ഇറങ്ങരുതെന്നും നിർദേശിച്ചിട്ടുണ്ട് രുമ പ്രാപിക്കുന്നതിനാൽ പ്രതിരോധ കാലവർഷം ശക്തി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ക്വാറി ക്രഷർ മണ്ണെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാ കലക്ടർ നിരോധിച്ചു രുമ സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ നടപടികൾ പാലിച്ച് മറ്റന്നാൾ മുതലാണ് മത്സ്യബന്ധനത്തിന് അനുമതിയെന്ന് ഫിഷറീസ് ഡയറക്ടർ എം

ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന കാലവസ്ഥാ ദുരന്ത നിവാരണ വകുപ്പുകളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യബന്ധന അനുമതി തീയതിയിൽ മാറ്റം വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു

മാരകമായി മുറിവേറ്റ വൃദ്ധ ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

അതിനിടെ വൃദ്ധയുടെ സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ

പെരിന്തൽമണ്ണ സ്വദേശി കൊടി ശറഫുദ്ധീൻ മണ്ണാർക്കാട് സ്വദേശി ഷെഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്

കേസിൽ പ്രതികളായ ഫൈസൽ ഫരീദും റബിൻസും യു

ഇയിലാണ്

എഫ് ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി സേവ് കേരള സ്പീക്കപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കും സംസ്ഥാനതല ഉദ്ഘാടനം കെ

സി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും ക്യാമ്പയിന്റെ ഭാഗമായി കെ

സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും രാവിലെ ഒമ്പതു മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സത്യാഗ്രഹം നടത്തും രുര ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വൻ സ്ഫോടനം

എസ് സുനിൽകുമാർ ഇന്ന് കർഷകരുമായി സംവദിക്കാനിരുന്ന കൃഷിമന്ത്രി വിളിപ്പുറത്ത് എന്ന പരിപാടി മാറ്റിവെച്ചു